മടക്കയാത്രയ്ക്ക് ഇന്ന് തുടക്കം

സ്ഥാർതപതി കാര്യാലയവുമായി ബന്ധപ്പെടണമെന്ന് പ്രിപാസികളോട് വിദേശകാര്യ മന്ത്രാലയം

ആഗ്ഗോള് പൂർണിമ ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രങ്കെടുക്കും കോവിഡ് പ്രതിസന്ധി സമയത്ത് ശ്രീബുദ്ധന്റെ പാത് പിന്തുടരണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

കേരളത്തിൽ കോവിഡ് സ്ഥിതി കൂടുതൽ മെച്ചപ്പെട്ടു എട്ട് ജില്ലകൾ കോവിഡ് മുക്തം

ജമ്മൂ കാശ്മീരിൽ സൂരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമൂട്ടലിൽ കൊടും ഭീകരൻ ഹിസ്ബുൾ മേധാവി റിയാസ് നായിക്കു കൊല്ലപ്പെട്ടു

അബുദാബിയിൽ നിന്ന് കൊച്ചിയിലും ദുബായിൽ നിന്ന് കോഴിക്കോട്ടുമാണ് പ്രവാസികളുമായി വിമാനങ്ങൾ എത്തുന്നത് മടങ്ങിവരുന്ന പ്രവാസികളുടെ ആരോഗ്യ കാര്യത്തിൽ കരുതലോടെയാണ് ഇടപെടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ഏഴാമത്തെ ദിവസം ഇവരെ പി സി

ഇതിൽ പോസിറ്റീവ് ആയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ ആശുപത്രിയിലേയ്ക്ക് മാറ്റും അല്ലാത്തവർ വീട്ടിലേയ്ക്ക് പോയി ക്വാറന്റയിനിൽ തുടരണം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

മൃയാത്രക്കാരെ പരിശോധിക്കാനായി തെർമൽ സ്കാനർ സംവിധാന്റു ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദേശത്ത് നിന്ന് എത്തുന്നവരെ താമസിപ്പിക്കുന്ന്തിനുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളും ജില്ലകളിൽ ഒരുക്കുന്നു ബ്ലീട്ടുകൾ തദ്ദേശസ്വയം ഭരണ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകീൾ എന്നിവിടങ്ങളിലാണ് താമസ സൌകര്യം ഒരുക്കുന്നത്

ഇവരെ വിമാനത്താവളത്തിൽ നിന്നും അതത് ജില്ലകളിലെ കാറന്റീൻ കേന്ദ്രത്തിലേക്ക് മാറ്റും

ഐ

തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സഞ്ജയ്കുമാർ ഗരുഡിനും നെടുമ്പാശ്ശേരിയിൽ മഹേഷ് കുമാർ കാളിരാജിനും കരിപ്പൂരിൽ എസ് സുരേന്ദ്രനുമാണ് ചുമതല കണ്ണൂർ വിമാനത്താവളത്തിൽ ഇപ്പോൾ വിമാനം എത്തുന്നില്ലെങ്കിലും ചുമതല കെ

കൊച്ചി തുറമുഖത്തിന്റെ ചുമതല സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാക്കറെയ്ക്കാണ്

ദൌത്യത്തിന്റെ ഭാഗമായ്ക് ഔന്നാംഘട്ട ഒഴിപ്പിക്കലിനായി നാവികസേനയുടെ ജലാശ്ച മഗർ ് എന്നീ കപ്പലുകൾ മാലദ്ധീപിലേക്ക് ആയിരത്തോളും പേരെ പുറപ്പെട്ടു ആദ്യ ഘട്ടത്തിൽ നാട്ടിലെത്തിക്കാനാകുമെന്നാണ്ട് കുണക്കാക്കുന്നത്

തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കും

മഹാരാഷ്ട്ര ഗുജറാത്ത് തെലങ്കാന എന്നിവിടങ്ങളിലും വിമാനങ്ങൾ എത്തും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിരിക്കും പരമാവധി പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നത്

പ്രവാസികൾ വിമാനത്താവളത്തിൽ എത്തുന്നതു മുതൽ പരിശോധിച്ച് ആവശ്യമുള്ളവർക്ക് മികച്ച ചികിത്സയും പരിചരണവും നൽകും ഇതിനുള്ള സൌകര്യമൊരുക്കുകുയും ജീവനക്കാരെ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു

അന്താരാഷ്ട്ര ബുദ്ധിസ്റ്റ് കൂട്ടായ്മയും കേന്ദ്ര സാംസ്ട്കാരിക വകുപ്പും ചേർന്നാണ് ലോകമെമ്പാടുമുള്ള ബുദ്ധമത്യ ആത്മീയാചാര്യന്മാരുടെ സമ്മേളനം സംഘടിപ്പിക്കുന്നത് കോഡിഡ് ബാധിച്ചു മരിച്ചവർക്ക് സമ്മേളനം ആദരാഞ്ജലി അർപ്പിക്കും പ് കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുൻനിരപ്പോരാളികൾക്ക് ആദരമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്

ദീനാനുകമ്പയും സ്നേഹവും സത്യവും നിറച്ച് സംഘർഷ രഹിതമായി മനുഷ്യരാശിയെ സേവിക്കാനുള്ള ബുദ്ധന്റെ സന്ദേശം പ്രചോദനകരമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു

ശ്രീബുദ്ധന്റെ ബോധനങ്ങൾ പിന്തുടരാനും ഐക്യബോധം ശക്തിപ്പെടുത്താനും ഈ ഉത്സവം പ്രചോദനമേകട്ടേയെന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു

ടെസ്റ്റുകളുടെ എണ്ണം വളരെ കുറഞ്ഞതും ആരോഗ്യ പ്രദ്ധ്യർത്തകർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായതും ഉൾപ്പെടെയുള്ളവ്യാണ് ഈ സ്ഥിതിക്ക് കാരണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തർ സെക്രട്ടറി അജയ് ഭല്ല പശ്ചിമ ബംഗാൾ സർക്കാരിന് കത്തയച്ചു

ഏഴുപേർക്ക് രോഗം ഭേദമായി

ഇന്നലെ സംസ്ഥാനത്ത് പുതിയതായി ഹോട്ട്സ്പോട്ടുകൾ ഇല്ല അവശേഷിക്കുന്ന എസ് എസ് എൽ

ചെന്നൈയിലാണ് കൂടുതൽ രോഗബാധ ഉണ്ടായത്

ട്രിച്ചിയിൽ നിന്നും ആകാശവാണി വാർത്താ വിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുൾ മുജാഹിദീന്റെ ജമ്മു കാശ്മീർ കമാൻഡർ റിയാസ് നായ്ക്കുവിനെയാണ് ബെയ്ഗ്പൊരയിൽ നടന്ന ഏറ്റുമുട്ടലിൽ സൈനൃം വധിച്ചത്

ഞായറാഴ്ച ഹന്ദ് വാരയിൽ കേണലും മേജറും ഉൾപ്പെടെ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചതിന് തിരിച്ചടിയാണ് ഹിസ്ബുൾ കമാൻഡറുടെ വധമെന്ന് സൈന്യം അറിയിച്ചു

കർണാടകം തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ കേരളത്തിലേക്ക് എത്തുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ റെഡ് സോണുകളിൽ നിന്ന് വരുന്നവരെ കോവിഡ് കെയർ കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിൽ പാർപ്പിക്കും